ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിന് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും

ഉണ്ടായ തിക്കിലും ്തിരക്കിലും ഏഴ് പേർ മരിച്ചു

ഇന്ത്യയ്ക്ക് അഞ്ച് മെഡലുകൾ

കേന്ദ്രഭരണ പ്രദേശമായ ഛണ്ഡിഗഡിലും വോട്ടെടുപ്പ് അവസാനഘട്ടത്തിലാണ്

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് ആറ് മണിക്ക് അവസാനിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വടകര നഗരസഭ ഒഞ്ചിയം നാദാപുരം പേരാമ്പ്ര കുമ്മൂമ്മ്ൽ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് സ്ത്രീർോധനാജ്ഞ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ കോഴീക്കോട് ജില്ലയിൽ പൊതുപരിപാടികളും റാലികളും വിലക്കിയിട്ടുണ്ട്

നിലവിലെ എം

എ യും ബിജെഡി സ്ഥാനാർത്ഥിയുമായ ബേദ് പ്രകാശ് അഗർവാളിന്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്നാണ് വോട്ടെടുപ്പ് മാറ്റിയത്

ഭുവനേശ്വറിൽ ചികിത്സയിലായിരുന്ന ബേദ് പ്രകാശ് ശനിയാഴ്ചയാണ് നിര്യാതനായത്

ജി പി ബോഡോലാന്റ് പീപ്പിൾസ് ഫ്രണ്ട് കോൺഗ്രസ്സ് എന്നീ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് സമാധാനപരമായ വോട്ടെടുപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി വിവിധ ജില്ലാ അധികൃതർ അറിയിച്ചു

ധൂലെയിലെ എൻ

എ സ്ഥാനാർത്ഥിയ്ക്കാ്യുള്ള പ്രചാരണത്തിന്റെ ഭാഗമായാണ് റാലി മുതിർ ്യൂ ബിജെപി നേതാവും മുഖ്യമന്ത്രിയുമായ ദേഷ്യേക്രൂ ഫട്നവിസും ബിജെപി ശിവസേന ആർ

ഐ സഖ്യർന്റെതാക്കളും റാലിയിൽ പങ്കെടുക്കും

ബിജെപി അധ്യക്ഷൻ അമിത്ഷാ പശ്ചിമബംഗാളിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണ റാലികളിൽ പങ്കെടുക്കും ഉത്തർപ്രദേശിൽ വിവിധ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് റാലികളെ അഭിസംബോധന ചെയ്യും

സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കുന്ന വിധം പ്രചാരണം നടത്തിയതിന്റെ പേരിലാണ് കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്

ഡൽഹി ബ്രിജ്ഷി പ്രസിഡന്റ് മനോജ് തിവാരി വടക്കുകിഴക്കൻ ഡൽഹിയ്ടിൽ മ്യൽസരിക്കും

സോനിപ്പട്ടിൽ കോൺഗ്രസ് സീനിയർ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭുപീന്ദർ സിംഗ് ഹൂഡ മത്സരിക്കും

രാജ്യത്തെ ശിഥിലമാക്കുന്ന ഇത്തരം പ്രവണതകളിൽ ബിജെപി നിശ്ശബ്ദമായിരിക്കില്ലെന്ന് ശ്രീ രാജ്നാഥ് സിങ് പറഞ്ഞു മധ്യപ്രദേശിൽ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും പ്രധാനമന്ത്രിയുടെ ദുരിക്ക്ക്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചു

തിരുവനന്തപുരം മെഡിക്കൽകോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തയ്യാറായിട്ടുള്ളത് ശ്രീലങ്കയിലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സംഘം പങ്കാളിയാവുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

ഇവരുടെ ബന്ധുക്കളുമായും ഹൈക്കമ്മീഷ്ണർ ്ഓഫീസുമായും ബന്ധപ്പെട്ടു വരികയാണ് റസ്പ്രീനയ്കുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത്തി ്മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ സൺറൈസേഴസ് ഹൈദരാബാദ് ഒൻപത് വിക്കറ്റിന് വിജയിച്ചു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ചെന്നൈയെ അവിസ്മരണീയ ഇന്നിങ്സിലൂടെ ധോണി മത്സരത്തിലേക്ക് തിരികെയെത്തിച്ചെങ്കിലും വിജയിക്കാനായില്ല

അവസാന പന്തിൽ ഓടി വിജയ റൺ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടെ ഷാർദൂർ ഠാക്കൂർ റണ്ണൌട്ടാകുകയായിരുന്നു

മൂന്നാം ഓവറിൽ തന്നെ കൃാപ്റ്റൻ വിരാട് കോഹ്ലിയെ നഷ്ടമായ ബാംഗ്ലൂരിന് ഏഴാം ഓവറിൽ ഡിവില്ലിയേഴ്സിന്റെ വിക്കറ്റും നഷ്ടമായി

നേരത്തെയുള്ള മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒൻപത് വിക്കറ്റിന് വിജയിച്ചു ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപ്പിറ്റൽസുമായി ഏറ്റ്മുട്ടും രാത്രി എട്ടിന് ജയ്പൂരിലാണ് മത്സരം

പൂവമ്മ അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ പരുൾ ചോദ്രി പതിനായിരം മീറ്റർ ഓട്ടത്തിൽ ഗവിത് മുരളി എന്നിവർ വെങ്കലവും കരസ്ഥമാക്കി